അഞ്ച് സംസ്ഥാനങ്ങളിലെ ജനവിധി നാളെ

പാർലമെന്റിന്റെ ശൈതൃകാലുസ്മ്മേളനത്തിന് നാളെ തുടക്കം

റിസർവ് ബാങ്ക് ഗവർണർ ഊർജിത് പട്ടേൽ രാജി വെച്ചു

വനിതകൾ നവോത്ഥാന്ത്തിന്റെ കാവലാളുകളെന്ന് മുഖ്യമന്ത്രി പിണിറാ്യി വിജയൻ

ബിജെപി യുവമോർച്ചു സെക്രട്ടറിയേറ്റ് മാർച്ചിൽ സംഘർഷം തിരുവനന്തപുരം ജില്ലയിൽ നാളെ ബിജെപി ഹർത്താൽ

വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ ശക്തമായ സുരക്ഷാ സംവിധാനവും സി സി സി ടി വി ക്യാമറ ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങളുമാണ് ഒരുക്കിയിട്ടുള്ളത്

ജനങ്ങളെയും വികസനത്തേയും സംബന്ധിക്കുന്ന വിഷയങ്ങൾ ഈ സമ്മേളനത്തിൽ ചർച്ച ചെയ്യപ്പെട്ണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു സമ്മേളനത്തിന് മുന്നോടിയായി ഇന്ന് ന്യൂഡൽഹിയിൽ വിളിച്ചു ചേർത്ത സർവ്വകക്ഷിയോഗിത്തിന് ശേഷം പാർലമെന്ററികാര്യ മന്ത്രി നരേന്ദ്രസിംഗ് തോമറ്റാണ്ട് ഇക്കാര്യം മാധ്യമപ്രവർത്തകരെ അറിയിച്ചത്

വ്യക്തിപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് രാജി കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ ആർബിഐ യെ വിവിധ തലങ്ങളിൽ സേവനമനുഷ്ഠിക്കാൻ കഴിഞ്ഞത് ഭാഗ്യമായി കരുതുന്നതായി രാജികത്തിൽ പറയുന്നു

ഹയർ അപ്പീലുകളുടെ പരിഗണനയ്ക്ക് ശേഷമാണ് ഔദ്യോഗിക ഫലപ്രഖ്യാപനം വന്നത് കോഴിക്കോടിന് രണ്ടാം സ്ഥാനം

ഇത്തവണ ഖജനാവിൽ നിന്ന് പണമെടുക്കാതെയാണ് സംസ്ഥാന കലോത്സവം നടത്തിയതെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ കെ

ശബരിമല വിഷയം ഉന്നയിച്ച് സെക്രട്ടറിയേറ്റിനു മുന്നിൽ നിരാഹാരമിരിക്കുന്ന ബിജെപി സംസ്ഥാന് ജനറൽ സെക്രട്ടറി എ എൻ രാധാകൃഷ്ണന്റെ സ്മരം അവസാനിപ്പിക്കാൻ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപി യുവമോർച്ച പ്രവർത്തകർ നടത്തിയ സെക്രട്ടറിയേറ്റ് മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചിരുന്നു സമരം അവസാനിപ്പിക്കണ്മെന്നാ്വശ്യപ്പെട്ട് ബിജെപി പ്രവർത്തകർ ജില്ലാ കളക്ട്രേറ്റുകളിലും ് താലൂക്ക് ഓഫീസുകളിലേക്കും മാർച്ച് നടത്തി എറണാകുളത്തും ക്കോട്ടയത്തും പത്തനംതിട്ടയിലും പ്രവർത്തകരെ പോലീസ് അറസ്റ്റു ചെയ്ത് നീക്കി അതേസമയം ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എ എൻ രാധാകൃഷ്ണനെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ആരോഗൃനില മോശമായതിനെതുടർന്നാണ് നടപടി

എൻ രാധാകൃഷ്ണന്റെ നിരാഹാര സമരം ഇന്ന് എട്ടാം ദിവസത്തേയ്ക്ക് കടന്നിരുന്നു

പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും

ജെ

സമാധാനാന്തരീക്ഷമാണുള്ളതെന്നും ആർക്കും ദർശനം നടത്താൻ സാഹചര്യമുണ്ടെന്നും കോടതി വൃക്തമാക്കി ശബരിമലയിൽ ദർശനത്തിനെത്തിയ തങ്ങളെ തടഞ്ഞു എന്നവകാശപ്പെട്ട് ചാലക്കുടി സ്വദേശികളാണ് കോടതിയെ സമീപിച്ചത്

മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവുകൾ നടപ്പിലാക്കുന്നതിൽ ഔദ്യോഗിക തലത്തിൽ് വീഴ്ചയുണ്ടായാൽ കമ്മീഷന് കൂടുതൽ അധികാരങ്ങൾ നൽകി അവ നടപ്പിലാക്കാൻ നടപടിയുണ്ടാകണമെന്ന് ഗവർണർ ജസ്റ്റിസ് പി സദാശിവം ആഗോള മനുഷ്യാവകാശ ദിനാഘോഷത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം വി ജെ റ്റി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കൂടുതൽ വിവരങ്ങളുമായി സോഫിയ

പ്രവർത്തന മികവിന്റെ പശ്ചാത്തലത്തിൽ കമ്മീഷന് കുടുതൽ അധികാരങ്ങൾ നൽകണം സംസ്ഥാനത്തുണ്ടായ പ്രളയത്തിന്റെ പശ്ചാത്ത ലത്തിൽ പരിസ്ഥിതി സംരക്ഷിച്ച് സ്വന്തം അവകാശങ്ങൾ കാത്തു സൂക്ഷി ക്കാൻ നാം ബാധ്യസ്ഥരാണ് ഭിന്നലിംഗുക്കാരുടെ അവകാശങ്ങൾ സംര ക്ഷിക്കാൻ നമുക്ക് ബാധ്യതയുണ്ടെന്നും അവർണർ പറഞ്ഞു സാധാരണ ക്കാർക്കിടയിൽ മനുഷ്യാവകാശ സാക്ഷ്രത കൈവരുത്തുന്നതിലൂടെ മാത്രമേ മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾക്ക് അർത്ഥം ക്രൈവ്രിക്കുകയുള്ളൂവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു

നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ സ്ത്രീകളും വലിയ പങ്കു വഹിച്ചിട്ടുണ്ട്

സ്ത്രീ ശാക്തീകരണ പരിപാടിയുടെ ഭാഗമായി മനുഷ്യാവകാശ ദിനത്തിൽ സെൻട്രൽ സ്റ്റേഡിയത്തിൽ സംസ്ഥാന വനിത ശിശു വികസന വകുപ്പ് സംഘടിപ്പിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി

മുഹമ്മദ് ഹനീഷ് കൊച്ചിയിൽ പറഞ്ഞു

പദ്ധതിയുടെ ഇതുവരെയുള്ള പുരോഗതിയിൽ ഇന്ത്യയിലെ ജർമ്മൻ അംബാസിഡർ സംതൃപ്തി രേഖപ്പെടുത്തി

ടെർമിനൽ നിർമ്മാണത്തിനുള്ള ടെൻഡറുകൾ ഈ മാസം അവസാനത്തോടെ പൂർത്തിയാകുമെന്നും അദ്ദേഹം പറഞ്ഞു

തൊഴിൽ മേഖലയിലെ അനന്ത സാദ്ധ്യതകൾ പർമാവ്ധി പ്രയോജനപ്പെടുത്താൻ മേള സഹായകമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു ഉദ്യോഗാർഥികൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ലക്ഷദ്ദീപ് വികസന കോർപ്പറേഷൻ തൊഴിൽ പരിശീലന വകുപ്പ് എന്നിവയുടെ ്സഹകരണത്തോടെയാണ് മേള സംഘടിപ്പിക്കുന്നത്

ടടട പിറവം പിറവം പള്ളിയുടെ അവകാശം ഓർത്തഡോക്സ് സഭയ്ക്ക് പൂർണമായി വിട്ടു നൽകിയ കോടതി വിധി നടപ്പാക്കുന്നതിടെ വിശ്വാസികളും പോലീസും തമ്മിൽ സംഘർഷം വിധി നടപ്പാക്കാൻ പോലീസ് എത്തിയതോടെ പള്ളിയുടെ അവകാശം വിട്ടുകൊടുക്കില്ലെന്ന് അറിയിച്ച് യാക്കോബായ വിഭാഗക്കാരായ പുരോഹിതരും വിശ്വാസികളും പ്രതിഷേധവുമായി രംഗത്തെത്തിയത് പുരോഹിതരുമായി പിന്നീട് ചർച്ച നടത്തിയ പോലീസ് നടപടിയുണ്ടാവില്ലെന്ന് അറിയിച്ചു ഓർത്തഡോക്സ് സഭ നൽകിയ കോടതി അലക്ഷ്യ ഹർജി ഹൈക്കോടതി നാളെ പരിഗണിക്കും

ആക്കുളം ബൈപാസ്സ് റോഡിൽ വച്ച് ഓയിൽ കൈമാറുന്നതിനിടെ രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നെടുമങ്ങാട് തൊളിക്കോട് സ്വദേശി അജിത്ത് ചെറ്റച്ചൽ സ്വദേശി ആഷിക് മന്നൂർക്കോണം സ്വദേശി അസിം എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് തിരുവനന്തപുരം എൻജിനിയറിങ് കോളേജ് പരിസരത്ത് വാടക റൂമിൽ താമസിച്ചു നഗരത്തിലും നെടുമങ്ങാട് മേഖലയിലും കഞ്ചാവ് കച്ചവടം നടത്തുന്ന ശൃംഖലയിലെ പ്രധാന കണ്ണികളാണ് ഇവർ

അന്ന് പെർത്തിൽ നടന്ന ടെസ്റ്റിലായിരുന്നു ഇന്തൃയുടെ വിജയം